കോവിഡ് നിർമാർജ്ജനം സാധ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് വാക്സിൻ ഉത്സവത്തിന് തുടക്കമായി

പിന്നിട്ട് ഇന്ത്യൂപ്പാക്സിൻ നൽകാൻ് മാസ് ക്യാമ്പയിൻ നടപടികളുമായി സംസ്ഥാന സർക്കാർ

പിന്മാറില്ലെന്ന് മന്ത്രി വി

ഹൈദരാബാദ് കൊൽക്കത്ത പോരാട്ടം

രാജ്യത്ത് പരമാവധി ആളുകൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് ഇന്നാരംഭിച്ച ബൃഹത്തായ കർമപദ്ധതിയെക്കുറിച്ചുള്ള ട്വീറ്റിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വയം വാക്സിനെടുക്കാൻ തയ്യാറാകുന്നതിനൊപ്പം മറ്റുള്ളവരെ വാക്സിനെടുക്കാൻ സഹായിക്കണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു

കോവിഡ് കേരളം കേരളത്തിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നും വർദ്ധന

ഇവരെ സംരക്ഷിക്കാൻ വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കുകയാണ് ലക്ഷ്യം

കോവിഡ് വാക്സിൻ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവനന്തപൂരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോ

കെശൈലജ സംസ്ഥാനത്ത് വേനൽ ശക്തിപ്പാപ്പിച്ചു പശ്ചാത്തലത്തിൽ ജലജനൃരോഗങ്ങൾക്കെതിരെ ജാഗ്രത് പാലിക്കണമെന്ന് മന്ത്രി കെ

ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗ്ഗ നിർദ്ദേശങ്ങൾ എല്ലാവുരൂർ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി വൃക്തമാക്കി

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും പൊതുജനങ്ങൾക്ക് ഇത്തവണ പൂരം ആസ്വദിക്കാൻ അവസരം ഒരുക്കുക കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്

ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം

മുല്ലപ്പള്ളി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്റർ ആക്രിക്കടയിൽ കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സമതിയെ നിയമിച്ചതായി കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാനൂർ മൻസൂർ വധക്കേസിലെ രണ്ടാംപ്രതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും ശ്രീ മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു ബന്ധു നിയമനം യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ എത്തിയാൽ ആദ്യ മന്ത്രിസഭാ തീരുമാനം മുഖ്യമന്ത്രി നടത്തിയ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിക്കുന്ന അന്വേഷണം പ്രഖ്യാപിക്കലാണെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി കെടി ജലീലിന്റെ ബന്ധുവിന് ന്യൂനപക്ഷ വിക്സന ധനകാര്യ കോർപ്പറേഷനിൽ യോഗൃതയിൽ മാറ്റം വരുത്തി നിയമനം നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെ വാർത്ത ഞെട്ടിക്കുന്നതാണ് മന്ത്രി ജലീലിനെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാടിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ താൽപ്പര്യമാണെന്നും ശ്രീ മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി

സുധാകരൻ കഴിഞ്ഞ രണ്ട് മാസമായി രാഷ്ട്രടീയ ക്രിമിനൽ സ്വഭാവത്തിൽ സത്യവിരുദ്ധവും അപകീർത്തികരവുമായ വാർത്തകൾ നൽകി തന്നെ ആക്രമിക്കുകയാണെന്ന് മത്തി ജി

തെരഞ്ഞെടുപ്പിന് ചില്ലാ ഗ്രാമ്പ്യമങ്ങൾ പിന്നാലെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഴ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്

വരെ വേഗതയിൽ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ്കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു